രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം അല്പസമയത്തിനകം

കോപിഡ് വ്യാപനം വർധിക്കുന്ന് സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കി പൊതുസ്ഥലത്ത് മാസ്ക് ധ്രിച്ചില്ലെങ്കിൽ കർശന നടപടി അടുത്ത് മൂന്നാഴ്ച നിർണ്ണായക്മെന്ന് ആരോഗ്യവകുപ്പ്

മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചു

വിദേശത്ത് നിന്ന് കേരളത്തിൽ എത്തുന്നവർക്കുള്ള കോവിഡ് പ്രോട്ടോക്കോളിൽ സംസ്ഥാനം മാറ്റം വരുത്തിയിട്ടില്ലെന്ന് സർക്കാർ

എസ് ആർ ടി സി

എൽ മത്സരങ്ങൾക്ക് നാളെ ചെന്നൈയിൽ തുടക്കം

ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് യോഗം

നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ കോവിഡ് സ്ഥിതി വിലയിരുത്തിയത്

ന്യൂഡൽഹി എയിംസിൽ രാവിലെയാണ് പ്രധാനമന്ത്രി വാക്സിൻ സ്വീകരിച്ചത്

പ്രതിരോധ മരുന്നിന് അർഹരായ എല്ലാവരും എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും

മാർച്ച് ഒന്നിനാണ് വാക്സിന്റെ ആദ്യ ഡോസ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

ത്തെരഞ്ഞെടുപ്പുമായി ബന്ധ പ്പെട്ട പ്രവർത്തനങ്ങളിൽ ബഹുഭൂരിപ്പക്ഷം ജനങ്ങളും പങ്കാളിയായ സാഹചരൃത്തിൽ സംസ്ഥാനത്ത് വരുന്ന മൂന്നാഴ്ച നിർണായകമാ ണ്

കോവിഡ് വർദ്ധിച്ചതോടെ ബാക് ടു ബേസിക്സ് കാമ്പയിൻ ശക്തിപ്പെടുത്തി

പ്രതിദിന കോവിഡ് പരിശോധനകൾ വർധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ മലപ്പുറം കണ്ണൂർ കോട്ടയം എന്നീ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ശക്തമായ നടപടികൾ സംസ്ഥാനം സ്പീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് സംസ്ഥാനത്തെ കോവിഡ് പ്രിതിരോധ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസർ ഡോ അമർ ഫെറ്റിൽ ആകാശവാണിയോട് പറഞ്ഞു

കൊവിഡിന്റെ പശ്ചാത്തലത്തിൽ എസ് എസ് എൽ സി പ്ലസ്ടു വിഎച്ച്എസ് സി ഉൾപ്പെടെയുള്ള പൊതു പരീക്ഷകളുടെ തീയതി ദീർഘിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനം

എസ് എൽ

നാളെ മുതലാണ് വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷ

ത്രിതല സുരക്ഷാ സംവിധാനമാണ് സ്ട്രോംഗ് റൂമുകൾക്ക് ഏർപെടുത്തിയിട്ടുളളത്

പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കലക്ടർ പറഞ്ഞു

കൊലപാതക കേസ് അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ പൊലീസിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പൊലീസ് മേധാവി ആർ ഇളങ്കോ പറഞ്ഞു

എ സലാം ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകഠ വ്യക്തമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

സർവകക്ഷിയോഗം യുഡിഎഫ് ബഹിഷ്കരിച്ചതല്ല കൺമുന്നിൽ പ്രതികളുണ്ടായിട്ടും പൊലീസ് പിടികൂടുന്നില്ലെന്നും ഉന്നതരായ സിപിഎം നേതാക്കളുടെ അറിവോടെയാണ് കൊലപാതകമെന്നും പി

എ സലാം കൊച്ചിയിൽ പറഞ്ഞു

പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളി തൊഴിലുടമ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്

ചെന്നൈയിൽ പ്രാരംഭ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും

ഇതിനായി കക്കാട് കെഎസ്ഇബി ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എൻജിനിയർക്ക് അനുമതി നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി